സംഭവം ഭീകര വിരുദ്ധ സ്കാഡ് അന്വേഷിക്കുമെന്ന് ഡി

ലോക്നാഥ് ബൈഹ്റ

സൂര്യാതപംകൊണ്ട് ഉണ്ടാകുന്ന ആരോഗൃ പ്രശ്നങ്ങൾ നേരിടാൻ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് മന്ത്രി കെ

എൻജിനിയറിങ് വിദ്യാർഥികൾക്ക് തദ്ദേശ സ്ഥയംഭരണ സ്ഥാപന ങ്ങൾവഴി നടക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ ഇന്റൺഷിപ്പ് അനുവദിക്കുമെന്ന് മന്ത്രി ഡോ

ആദ്യ ഖേലോഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് പ്രധാനമന്ത്രി നരേ ന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു

കൊല്ലം കുളത്തൂപ്പുഴയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ വെടിയുണ്ടകൾ പാകിസ്ഥാൻ നിർമ്മിതമെന്ന് സംശയം വെടിയുണ്ടകളിൽ പി

എന്ന് രേഖപ്പെടുത്തിയതായി പരിശോധനയിൽ കണ്ടെത്തി ഡാലി മുപ്പതടിപ്പാലത്തിനു സമീപം വെടിയുണ്ടകൾ കണ്ടവിവരം നാട്ടുകാരാണ് പോലീസിൽ അറിയിച്ചത്

വെടിയുണ്ടകൾ വിദേശത്ത് നിന്നു കൊണ്ടുവന്നതാണെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ മനസിലായത് എന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻകിബാത്തിൽ ആകാശവാണിവഴി ജനങ്ങളുമായി തന്റെ ചിന്തകൾ ഇന്ന് പങ്കുവയ്ക്കും

ദൂര ദർശൻ ചാനലുകളും പരിപാടി സംപ്രേക്ഷണം ചെയ്യും ആകാശവാണി ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും ആകാശവാണിയുടെയും ദൂരദർശൻ ന്യൂസിന്റെയും പ്രധാനമന്ത്രിയുടെ ഓഫീസ് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻകിബാത്ത് ലഭിക്കും പ്രധാനമന്ത്രിയുടെ പ്രഭാഷണം കഴിഞ്ഞാലുടൻ മലയാള പരിഭാഷ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും രാത്രി എട്ടിന് ഇതിന്റെ പുനപ്രക്ഷേപണവും ഉണ്ടാ കും കാലാവസ്ഥാ വൃതിയാനംമൂലം അന്തരീക്ഷ ഊഷ്മാവ് ക്രമാതീത മായി ഉയരുന്ന സാഹചര്യത്തിലും ചില ജില്ലകളിൽനിന്ന് സൂര്യാതപം കൊണ്ടുണ്ടാകുന്ന ആരോഗ്യപ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനാലും എല്ലാവരും മുൻകരുതലെടുക്കണമെന്ന് മന്ത്രി കെ

സൂര്യാഘാതത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമായാലുടൻ ചികിത്സ തേടണമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി അബ്ദുൾ കബീർ

വളരെ ഉയർന്ന ശരീരതാപം വറ്റിവരണ്ട ചുവന്നു ചൂടായ ശരീരം ശക്തിയായ തലവേദന തലകറക്കം മന്ദഗതിയിൽ നാഡിമിടിപ്പ് മാനസികാവസ്ഥയിൽ മാറ്റങ്ങൾ തുടങ്ങിയവയും ഇതിനെത്തുടർന്നുണ്ടാ കുന്ന അബോധാവസ്ഥയും സൂര്യാഘാതംമൂലം ഉണ്ടായേക്കാം നിർജ ലീകരണം ഒഴിവാക്കാൻ ധാരാളം വെള്ളം കുടിക്കണം

ധരിച്ചിരിക്കുന്ന കട്ടികൂടിയ വസ്ത്രങ്ങൾ നീക്കം ചെയ്യണം തണുത്തവെള്ളംകൊണ്ട് ശരീരം തുടയ്ക്കുകയും ഫാൻ എ സി എന്നിവയുടെ സഹായത്തോടെ ശരീരം തണുപ്പിക്കുകയും വേണം

ഫലങ്ങളും സാലഡുകളും കഴിക്കണം ആരോഗ്യസ്ഥിതി മെച്ചപ്പെ ടുന്നില്ലെങ്കിലോ ബോധക്ഷയം ഉണ്ടാവുകയോ ചെയ്താൽ അടുത്ത ആശുപത്രിയിലെത്തിച്ച് ചികിത്സ ഉറപ്പുവരുത്തണമെന്നും മന്ത്രി പറഞ്ഞു

കൊറോണയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിൽ ദ പേരാണ് ഇനി നിരീക്ഷണത്തിലുള്ളത് ആശുപത്രികളിൽ ആരും തന്നെ നിലവിൽ നിരീക്ഷണത്തിൽ ഇല്ല

എഞ്ചിനീയറിങ് വിദ്യാർത്ഥികൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നടക്കുന്ന വികസന പ്രവർത്തന ങ്ങളിൽ ഇന്റേൺഷിപ്പ് ഡോ

സർവകലാശാലകളിൽ ഇന്റേണൽ അസെസ്മെന്റിൽ മിനിമം മാർക്ക് വേണമെന്ന നിബന്ധന അടുത്ത അധ്യയന വർഷം മുതൽ ഒഴിവാക്കുമെന്നും ഡോ

ഉന്നത പഠന രംഗത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഗവൺമെന്റ് നടപടി സ്വീകരിക്കുകയാണെന്ന് മന്ത്രി ടി

കോഴിക്കോട് തോട്ടുമുക്കം ഗവ

സ്കൂളിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി തൊഴിൽ ചെയ്ത് പഠനം നടത്താൻ സാഹചര്യമുണ്ടാക്കണമെന്നാണ് ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു

കൃത്രിമ ബുദ്ധി വെർച്ചൽ റിയാലിറ്റി ഇന്റർനെറ്റ് ഓഫ് തിംഗ്സ് എന്നിവയുടെ സാധ്യതകളാണ് വിദഗ്ധർ ചർച്ച ചെയ്തത് അവിനാശി അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ റോഡ് സുരക്ഷാ അടിയന്തിര യോഗം മറ്റന്നാൾ വൈകീട്ട് മൂന്നിന് ഗതാഗതമന്ത്രിയുടെ ചേംബറിൽ തിരുവനന്തപുരത്ത് നടക്കും വാഹനങ്ങളുടെ അമിതവേഗം നിയന്ത്രിക്കുന്നതും മുൻ കരുതലുകൾ സ്വീകരിക്കുന്നതും ആലോചിക്കുന്നതിനാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അടിയന്തിര യോഗം വിളിച്ചു ചേർക്കുന്നത് ഹൈവേ പോലീസിന്റെ പ്രവർത്തനത്തിന് പുതിയ മാർഗനിർദേശ മായി ഇതനുസരിച്ച് റെയ്ഞ്ച് ഡി ഐ ജിമാരും സോണൽ ഐജിമാരും ക്രമസമാധാനവിഭാഗം എ

യും നിശ്ചിത ഇടവേളകളിൽ ഹൈവേ പോലീസിന്റെ പ്രവർത്തനം നേരിട്ട് വിലയിരുത്തും

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗെയിംസ് ആരംഭി ച്ചതായി പ്രഖ്യാപിച്ചു

വീഡിയോ കോൺഫറൻസ് വഴിയാണ് പ്രധാനമന്ത്രി ഗെയിംസ് ഉദ്ഘാ ടനം ചെയ്തത് രാജ്യത്തെ കായിക വിപ്തവത്തിൽ പുതിയ ചരിത്രം കുറി ച്ചിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

ഭുവനേശ്വറിൽ പ്രൊലീഗ് ഹോക്കിയിൽ ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം പെനാൾട്ടി ഷൂട്ടൌട്ടിൽ ഒന്നിനെ തിരെ മൂന്ന് ഗോളിനാണ് ഇന്ത്യയുടെ ജയം മലയാളി ഗോൾകീപ്പർ പി

ശ്രീജേഷിന്റെ പ്രകടനമാണ് ഇന്ത്യയെ വിജയത്തിലെത്തിച്ചത്

ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഒഡീഷ എഫ്

യെ നേരിടും

ഐ

എൽ ആറാം സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന മത്സരമാണിത് ഇന്ത്യൻ സൂപ്പർലീഗ് ഫുട്ബോളിൽ എ

കൊൽക്കത്ത ബെം ഗളുരു എഫ്

ബെംഗളുരുവിൽ ഇരു ടീമുകളും രണ്ട് ഗോൾവീതം നേടി മികച്ച കായിക താരങ്ങളെ വളർത്തിയെടുത്ത അമ്മമാർക്ക് ക്രീഡാ ഭാരതി നൽകുന്ന ജീജാഭായി പുരസ്കാരം കോഴിക്കോട് നടന്ന ചടങ്ങിൽ ഉത്തർ പ്രദേശ് കായിക മന്ത്രി ചേതൻ ചൌഹാൻ ഒളിംപ്യൻ കെ

ഇർഫാനെ കായികരംഗത്തേക്ക് കൈപിടിച്ച് ഉയർത്തിയ സുലൈഖയ്ക്ക് സമ്മാനിച്ചു

സംസ്ഥാന ദേശീയ തലങ്ങളിൽ മികവ് തെളിയിച്ച കായിക താരങ്ങളെയും ആദരിച്ചു

ഐ എം സംഘടിപ്പിക്കുന്ന കാലിക്കറ്റ് മാരത്ത ണിന് തുടക്കമായി

മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കണ്ണൂർ ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും രാവിലെ തളിപറമ്പിൽ സ്ഥാപിക്കുന്ന ജയിലിന്റെയും പയ്യന്നൂർ കോടതി കെട്ടിടത്തിന്റെയും ശിലാസ്ഥാപനം മുഖ്യമന്ത്രി നിർവഹിക്കും ഉച്ചയ്ക്ക് ശേഷം മാടായി മേലതിയടം വായനശാലയും മാവിലായിയിലെ എ

ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോ ഓപ്റേറ്റീവ് മെഡിക്കൽ സയൻസ് കെട്ടിടവും ഉദ്ഘാടനം ചെയ്യും വടക്കാഞ്ചേരി കൊറ്റമ്പത്തൂർ ഇല്ലിക്കുണ്ട് വനമേഖലയിൽ കാട്ടുതീ കെടുത്തുന്നതിനിടെ മരിച്ച മൂന്ന് വനപാലകിരുടെ കുടുംബങ്ങൾക്ക് മന്ത്രി കെ രാജു ധനസഹായം വിതരണം ചെയ്തു

സർവ്വീസിലിരിക്കേ മരണമടയുന്ന വനം വകുപ്പ് ജീവനക്കാരുടെ ആശ്രിതർക്ക് ഉടൻ ജോലിനൽകുമെന്ന് മന്ത്രി കെ

വാളയാർ ഫോറസ്ട്രി ട്രെയിനി ഇൻസ്ടിട്യൂട്ടിൽ നിന്നും പരിശീലനം പൂർത്തി യാക്കിയവരുടെ പാസിങ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി

ചില പട്ടികജാതി പട്ടിക വർഗ സംഘടനകൾ ഇന്നു പ്രഖ്യാപിച്ച ഹർത്താലിൽ സർവ്വീസ് മുടക്കരുതെന്ന് കെ എസ്

ടി സി

ഞായറാഴ്ച നടത്തുന്ന എല്ലാ സർവീസുകളും നടത്തണമെന്നാണ് നിർദേശം സംവരണം മൌലിക അവകാശമല്ലെന്നും സ്ഥാനക്കയറ്റത്തിൽ സംവരണം ഏർപ്പെടുത്താൻ ഗവൺമെന്റിനോടു നിർദേശിക്കാനാവില്ലെന്നും സുപ്രീം കോടതി വിധിച്ചതിൽ പ്രതിഷേധിച്ച് ഭീം ആർമി നേതാവ് ചന്ദ്രശേഖർ ആസാദ് ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദിന് പിന്തുണ പ്രഖ്യാപിച്ചാണ് സംസ്ഥാനത്ത് ഹർത്താൽ നടത്തുന്നത് രാവിലെ ആറുമുതൽ വൈകീട്ട് ആറു വരെയാണ് ഹർത്താൽ എസ് ടി യു ദേശീയ പ്രസിഡണ്ടായി എം റഹ്മത്തുള്ളയെയും ജനറൽ സെക്രട്ടറിയായി ജാഫറുള്ള മുള്ളയേയും ട്രഷററായി എൻ ബി വാഹിദിനെയും ബാംഗ്ലൂരിൽ ചേർന്ന ദേശീയ കൌൺസിൽ യോഗം തിരഞ്ഞെടുത്തു

എം ഖാദർ മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു മൂന്നാറിൽ സ്ട്രോബറി കൃഷി വിളവെടുപ്പ് നാളെ മന്ത്രി വി

സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും കൃഷിവകുപ്പ് ഹോർട്ടികൾച്ചർ മിഷൻ ഹോർട്ടികോർപ്പ് ഹരിതകേരളം എന്നിവ സംയുക്തമായാണ് സ്ട്രോബറി കൃഷി നടത്തിയത് ചടങ്ങിൽ സ്ട്രോബ് പാർക്ക് വെബ്സൈറ്റ് എന്നിവയുടെ ഉദ്ഘാടനവും നടക്കും അവിനാശി വാഹനാപകടത്തിൽ മരിച്ച തൃശൂർ സ്വദേശി ഇഗ്നിയുടെ മൃതദേഹം ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോനാ പള്ളിയിൽ സംസ്ക രിച്ചു ഇഗ് നിക്കൊപ്പം അപകടത്തിൽ പെട്ട ഭാര്യ വിൻസി കോയമ്പത്തൂരിലെ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുകയാണ്